സുരക്ഷിതമായും സമൃദ്ധിയോടുപ്പു അന്തസ്സോടും ജീവിക്കാൻ കഴിയുന്ന പുതിയു ഇന്ത്യയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രിദ്ധ്യർ ്രേന്ദ്രമോദി

ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ രക്തസാക്ഷികൾക്ക് രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

ഇരുരാജ്യങ്ങൾക്കും സ്വീകാര്യമായ വിഷയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റുമായി മൂന്നാമതും ചർച്ച നടത്താൻ തയ്യാറെന്ന് ഉത്തരകൊറിയ

ദേശീയ നേതാക്ക ളുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേശ്പ്പ വോയിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണ്ണാടകയിലും തമിഴ്നാട്ടിലും തെര ഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

മത്സ്യത്തൊ ഴിലാളികൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്നും ഇവരുടെ ക്ഷേമത്തിനായി മത്സ്യ സമ്പാദ യോജന വികസിപ്പിക്കു മെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ തമിഴ്നാട്ടിലെ തേനിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം പങ്കെടുത്തു എല്ലാവർക്കും സുരക്ഷിതമായും മാനൃമായും ജീവിക്കാൻ കഴിയുന്ന പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു

കർഷകർക്കായി പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നും കാർഷിക വായ്പ തിരിച്ചടവ് മുടക്കിയാൽ ജയിലിൽ പോകേണ്ടി വരില്ലെന്നും അദ്ദേഹം ഉറപ്പുനൽകി

കൊല്ലത്ത് എൻ ഡി

യുടെ തൌര്ണ്ഞ്ഞടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം വികസനത്തിലും പ്രതിസന്ധിഘട്ട ങ്ങളിലും എൻഡിഎ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനൊപ്പം നിന്നു മുമ്പ് ത്രിപുരയിൽ എന്നപോലെ കേരളത്തിലും അക്രമ രാഷ്ട്രീയം വലിയതോതിൽ ഉണ്ട് കേരളത്തിൽ ബിജെപി അധികാരത്തിൽ എത്തിയാൽ അക്രമരാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

തമിഴ്നാട് ഡൽഹി ആന്ധ്രപ്രദേശ് പഞ്ചാബ് എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങൾ

റാഫേൽ ഇടപാടും നികുതി ഇളവും തമ്മിൽ വിദൂര ബന്ധം പോലും ഇല്ല എന്ന് പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നു

അനിൽ അംബാനിയുടെ കമ്പനിക്ക് നികുതി ഇളവ് ലഭിച്ചു എന്ന് ഫ്രഞ്ച് പത്രം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ക്ടോൺഗ്രസിന്റെ പ്രതികരണം റഫേൽ ഇടപാടുമായി ബസ്ട്രപ്പെട്ടാണ് നികുതി ഇളവ് ലഭിച്ചതെന്ന് കോൺഗ്രസ് വക്താപ്പ് രൺദീപ് സുർജെവാല മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ഒ യുമായ രമേഷ് സി ബാവയെ അറസ്റ്റ് ചെയ്തു വിശ്വാസ യോഗ്യമല്ലാത്ത കമ്പനികൾക്ക് അധികാര ദുരുപയോഗം നടത്തി ലോൺ അനുവദിച്ചു എന്നതാണ് കേസ്

എൽ ആന്റ് എഫ് എസ് കടം എടുത്തിട്ടുള്ളത്

അംബേദ്ക്കർ ജയന്തി പ്രമാണിച്ചാണ് അവധി നൽകിയത്

ഷോപ്പിയാൻ ജില്ലയിലെ ഗഹന്ദ് മേഖലയിൽ സൈനൃവും തീവ്ര വാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സംയുക്ത സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങിയവർ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു ഉപരാഷ്ട്രപതി അമൃത്സറിൽ രക്തസാക്ഷി സ്മാരകത്തിൽ ശ്രദ്ധാ ഞ്ജലി അർപ്പിച്ചു കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥം നാണയവും പോസ്റ്റൽ സ്റ്റാമ്പും പുറത്തിറക്കി

പരമ്പരാഗത നൃത്ത രൂപങ്ങളും അതരിപ്പിച്ചു

വിളവെടുപ്പ് ഉത്സവങ്ങളായ ബൈശാഖി വിഷു റൊങ്കാളി ബിഹു പുത്താണ്ട് പിറപ്പ് എന്നീ ആഘോഷങ്ങൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസകൾ അർപ്പിച്ചു

ഇന്ത്യൻ സംസ്ക്കാരത്തിന്റെ പ്രൌഢിയുടെ പ്രതിഫലനമാണ് ഈ ആഘോഷമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു സന്ദേശത്തിൽ പറഞ്ഞു

ഉത്തരകൊറിയൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് കിം നയം വൃക്തമാക്കിയത്

എസ് ന്റെ ഏകപക്ഷീയമായ നിലപാട് കാരണമാണ് കഴിഞ്ഞ ചർച്ച പരാജയപ്പെട്ടതെന്നും എന്നാൽ ട്രംപുമായുള്ള വ്യക്തിബന്ധം നന്നായി തുടരുന്നുവെന്നും കിം വൃക്തമാക്കി

ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ കൈക്കൊള്ളാൻ ആറ് മാസത്തെ സമയപരിധി നൽകി രാഷ്ട്രീയ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാൻ ഐകൃരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോട് ഐക്യരാഷ്ട്ര സഭ ആവശ്യപ്പെട്ടു

വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാനായി പോയ വാഹനം ഒഴുക്കിൽ മുങ്ങിപ്പോകുകയായിരുന്നുവെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ആറ് കുട്ടികളെ കാണാതായി ഇവർക്കായി തെരച്ചിൽ തുടരുന്നു

പ്രവിശ്യ പൊലീസ് മേധാവി ഫക്കീർ അഹമ്മദ് നൂറിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു

സിന്ധു പുറത്ത് ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയോട് നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് സിന്ധുവിന്റെ പരാജയം

തട്ടികൊണ്ട പോകാനോ പ്രചാരണ സ്ഥലത്ത് അക്രമം നടത്താനോ സാധ്യതയുള്ളതായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷയ്ക്കായി എൽ

എഫ് സ്ഥാനാർത്ഥി പി പി സുനീറിനും എൻ

എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കും ഓരോ ഗൺമാന്മാരെ നൽകാൻ തീരുമാനമായിട്ടുണ്ട് വനാതിർത്തിയിൽ രാഷ്ട്രീയപാർട്ടികൾ പ്രചാരണം നടത്തുമ്പോൾ സുരക്ഷ നൽകണമെന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്

ജെ

എക്സൈസ് നഗരവികസനം ഉൌർജ്ജു എന്നീ വകുപ്പുകളിൽ നിന്ന് പണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന് ബി ജെ പി വക്താവ് മീനാക്ഷി ലേഖി ആരോപിച്ചു